പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി എ ഗവൺമെന്റിന്റെ ചരിത്രപരമായ ചൂവട് വെയ്പ്പെന്നും നരേന്ദ്രമോദി

ബജറ്റ് ഉൾക്കൊള്ളുന്നതായും അദ്ദേഹം പറഞ്ഞു പശ്ചിമ ബംഗാളിലെ ദുർഗാ പൂരിൽ പൊതു സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വികസന വിരുദ്ധമാണെന്നും ഗ്രാമീണരെയും കർഷകരെയും ക്രിണമൂൽ കോൺഗ്രസ് അവഗണിക്കുകയാണെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു ആയുഷ് മാൻ ഭാരത് പദ്ധതിയിൽ നിന്ന് പിൻമാറിയത് നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി പ്രവർത്തകർക്ക് നേരെ ബംഗാളിൽ ഉ ാകുന്ന ആക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചു അൻഡാൽ മാൽഡ റെയിൽവേ വൈദ്യുതലൈൻ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു

ശ്രീനഗർ ലേ ജമ്മു എന്നിവിടങ്ങൾ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി സംസ്ഥാനത്ത് ഒട്ടേറെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും പൊതു റാലിയിലും അദ്ദേഹം പങ്കെടുക്കും കൂടുതൽ വിവരങ്ങളുമായി വിനോദ്കുമാർ

ജമ്മുവിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ വടക്കൻ മേഖല ക്യാമ്പസ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ശ്രീ മോദി നിർവഹിക്കും

അസം ഗുജറാത്ത് ഹരിയാന ഒഡിഷ മഹാരാഷ്ട്ര തെലങ്കിന് എ്ന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സർപഞ്ചുമാരുമായും പ്രെയാനമന്ത്രി നരേന്ദ്രമോദി ആശയവിനിമയം നടത്തും

പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ജമ്മുകാശ്മീരിൽ സുരക്ഷ ശക്തമാക്കിയിട്ടു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആരോഗി കുടുംബക്ഷേമ വകുപ്പുമന്ത്രി അശ്വനി കുമാർ ചുംബെ ന്യൂഡൽഹിയിൽ ദേശീയ ആരോഗ്യ ദൌത്യവുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം

പോസ്റ്റൽ ഉലൈഫ് ഇൻഷുറൻസ് റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എ്ന്നിവയാണ് മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമ്ർപ്പിച്ചിരിക്കുന്നത്

എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കാനുള്ള തീരുമാനം ഫെബ്രുവരി അവസാനത്തോടെ പൂർത്തികരിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു

പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതിയിൽ ചേർന്ന ഉന്നതതല സമിതിയാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത്

ര ു വർഷം അദ്ദേഹത്തിന് സിബിഐ ഡയറക്ടർ പദവിയിൽ തുടരാനാകും

അമേരിക്കയിലെ ഇന്ത്യൻ എംബ്ലസീയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ അവസ്ഥ നീരീക്ഷിച്ച് വരികയാണ് വിദ്യാർത്ഥികളുടെ സുർക്ഷ്യിൽ ആശങ്ക വേ ന്നും അവരെ മോചിപ്പിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ച് വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി

ആനന്ദ് ടെൽടുംബടെ യുടെ അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് പൂനെ കോടതി അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ ഇതേ കോടതി തള്ളിയിരുന്നു

എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് വിദ്രയ്ക്കെതിരെ കേസെടുത്തത്

ശീതയുദ്ധ സന്ധിയിലെ വൃവസ്ഥ റഷൃ ലംഘിച്ചതിനാൽ കരാറിൽ നിന്നും പിൻമാറുന്നതായി കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അറിയിച്ചിരുന്നു കരാർ വൃവസ്ഥ ലംഘിച്ച് റഷ്യ ദീർഘദൂര മിസൈൽ പരീക്ഷണം നടത്തിയതായും അമേരിക്ക ആരോപിച്ചു എന്നാൽ മിസൈൽ പരീക്ഷണം സംബന്ധിച്ച അമേരിക്കൻ ആരോപണം റഷ്യ നിഷേധിച്ചു അമേരിക്കയ്ക്ക് വേ ാത്ത കരാർ റഷ്യയ്ക്കും വേ ന്ന നിലപാടാണ് പ്രസിഡന്റ് പുട്ചിൻ സ്വീകരിച്ചിരിക്കുന്നത്

ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യാഗവൺമെന്റാണ് ഇത് സംബന്ധിച്ച് തീരുമാനം എടുത്തത്

ബുധനാഴ്ച മുതൽ മുഗൾ ഗാർഡനീലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകുമെന്ന് രാഷ്ട്രപതി ഭവൻ അറിയിച്ചു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഈ വർഷത്തെ പുഷ്പ്പോത്സവം ഉദ്ഘാടനം ചെയ്യും

അസ്സാം സ്വദേശിയായ ഇയാളെ പശ്ചിമ ബംഗാൾ പൊലീസ് കേരളത്തിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ബർദ്വാൻ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടാണ് അബ്ദുൾ മോട്ടിൻ അറസ്റ്റിലായത്

മൂല്യനിർണയത്തിൽ നെഗറ്റീവ് മാർക്ക് നൽകുന്നതുവഴി നിരവധി വിദ്യാർത്ഥികൾക്ക് ഐ ഐ ടി പോലുള്ള മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പ്രവേശനം ലഭ്യമാകുന്നില്ല

ക്യൂൻസ് ലാൻഡ് മേഖലയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയാണ്

വെല്ലിംഗ്ടണിൽ നടക്കുന്ന മത്സരത്തിൽ മുൻ നായകൻ എം എസ് ധോണി കളിക്കുമെന്ന് ഉറപ്പായിട്ടു ് പരമ്പരയ്ക്കു മുൻപ് ടീമിന്റെ ആത്മവിശ്വാസം നിലനിർത്താൻ വിജയം ആവശ്യമാണെന്ന് പരിശീലകൻ രവി ശാസ്ത്രി പറഞ്ഞു